നാളെ മുതൽ അഞ്ച് പേരിൽ കൂടുതൽ ഒത്തുചേരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ത ഇന്ന് ഗാന്ധി ജയന്തി

കെഎസ്ആർടിസി ഇന്ന് സേവന ദിനം ആചരിക്കും ത ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവ്വകലാശാല മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും

ത ആർഡിഒ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മൂന്ന് മാസത്തിനകം തീർപ്പാക്കാൻ നിർദേശം വാർത്തകൾ വിശദമായി കേരളം കർശന കോവിഡ് നിയന്ത്രണത്തിലേക്ക് നീങ്ങുന്നു കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ ഒൻപത് മുതൽ അഞ്ച് പേരിൽ കൂടുതൽ ഒത്തുചേരുന്നതിന് ഗവൺമെന്റ് വിലക്ക് ഏർപ്പെടുത്തി

ഓരോ ജില്ലയിലേയും സാഹചര്യമനുസരിച്ച് ജില്ലാ കലക്ടർമാർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാം

വിവാഹ മരണാനന്തര ചടങ്ങുകൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവുകൾ തുടരും

സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ഉണ്ടായത്

സംസ്ഥാനത്ത് ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞു

സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്

ദേദ കൊല്ലം ശക്തികുളങ്ങര ഹാർബർ അടച്ചു പ്രദേശത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഹാർബർ അടച്ചിടാൻ കലക്ടർ ഉത്തരവിട്ടത് ദരര എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഫ്ളൈയിംഗ് സ്ക്വാഡ് പ്രവർത്തനം ഊർജ്ജിതമാക്കി

ദേദ തിരുവനന്തപുരം മെഡിക്കൽ കോളജ് കോവിഡ് വാർഡിൽ ചികിത്സയിലിരിക്കെ ആത്മഹത്യക്ക് ശ്രമിച്ച രോഗി മരിച്ചു

രാവിലെ രാജ്ഘട്ടിൽ സമാധി സ്ഥലത്ത് സർവ്വമത പ്രാർത്ഥന നടത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിരവധി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ജന്മവാർഷിക ദിനം ലോക അഹിംസ ദിനമായും ആചരിക്കും ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിലെ കീർത്തി മന്ദിരത്തിലും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലും സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ ചടങ്ങുകളും നടക്കും

രുമ ഗാന്ധിജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കിഴക്കെക്കോട്ട ഗാന്ധിപാർക്കിലെ മഹാത്മാ പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഹാരാർപ്പണവും പുഷ്പാഞ്ജലിയും നടത്തും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും ദരദ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് കെ എസ് ആർ ടി

ഈ മാസം എട്ട് വരെ ഉപഭോക്തൃവാരം ആചരിക്കാനും കെ എസ് ആർ ടി സി തീരുമാനിച്ചിട്ടുണ്ട് സേവന ദിന ഉപഭോക്തൃ വാരാചരണം രാവിലെ കോഴിക്കോട് ഡിപ്പോ പരിസരത്ത് മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ബസ് ഡിപ്പോകളിൽ ഗാന്ധിജിയുടെ ആപ്തവാക്യങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ അലങ്കരിച്ച് സ്ഥാപിക്കും ഉപഭോക്തൃവാര ദിവസങ്ങളിൽ രാവിലെയും വൈകീട്ടും കെ

സിയുടെ സേവനങ്ങൾ യാത്രക്കാർക്ക് വിശദീകരിക്കുകയും അവരുടെ പരാതികൾക്ക് പരിഹാരം നിർദേശിക്കുകയും ചെയ്യും

ദേദ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ വൈകീട്ട് കണ്ണൂരിൽ ഗാന്ധി സ്മൃതി യാത്ര നടത്തും ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ

അബ്ദുള്ളക്കുട്ടി നയിക്കുന്ന യാത്ര ദേശീയ നിർവ്വാഹക സമിതി അംഗം സി

പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും ദേഴ കൊല്ലം കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ പൊതു ശൌചാലയത്തിന് ദേശീയതലത്തിൽ സ്വച്ഛ് ഭാരത് മിഷൻ പുരസ്കാരം ലഭിച്ചു സാമുദായിക് ശൌചാലയ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനമാണ് പഞ്ചായത്ത് സ്വന്തമാക്കിയത് സ്വച്ഛ സുന്ദർ സാമുദായിക ശൌചാലയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സമ്മാനം ഏർപ്പെടുത്തിയത് ദേഴ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്ത് തുടങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവ്വകലാശാല ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും വൈകീട്ട് മൂന്നരക്കാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഓൺലൈനിൽ ഉദ്ഘാടന ചടങ്ങ് മന്ത്രി ഡോ

ടി

പരിപാടിയിൽ മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ

ഉദ്ഘാടന ചടങ്ങ് തൽസമയം ജനങ്ങളിലെത്തിക്കാൻ നഗരത്തിൽ പലയിടത്തും ഡിജിറ്റൽ ബിഗ് സ്ക്രീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഫെയ്സ്ബുക്കിലും പരിപാടി തൽസമയം കാണാം

ഇന്ന് വൈകീട്ട് ഏഴരക്ക് ദുബായിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും ദ്ദേ ആർഡിഒ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മൂന്ന് മാസത്തിനകം തീർപ്പാക്കാൻ മന്ത്രി ഇ

മുതിർന്ന പൌരൻമാരുടെ സംരക്ഷണമടക്കം ഫയലുകളിൽ തീർപ്പുണ്ടാകുന്നതിലെ കാലതാമസം സംബന്ധിച്ച പരാതികൾ പരിഗണിച്ചാണ് ആർഡിഒ മാരുടേയും കലക്ടർമാരുടേയും യോഗത്തിൽ മന്ത്രിയുടെ നിർദേശം രാമ ശാസ്ത്രസാങ്കേതിക മേഖലകളിൽ രാജ്യത്തിന്റെ കുതിപ്പ് ലക്ഷ്യമാക്കി വൈഭവ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ വംശജരായ ഗവേഷകരേയും അക്കാദമിക്ക് രംഗത്ത് പ്രവർത്തിക്കുന്നവരേയും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് വൈഭവ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്

വന്യജീവി സംരക്ഷണം ഭരണഘടനാപരമായും പാരിസ്ഥിതികമായും മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിവാക്കാനാവാത്തതാണെന്ന് ദിനാചരണ സന്ദേശത്തിൽ മന്ത്രി കെ

തൃശൂർ പുത്തൂരിൽ നിർമ്മിക്കുന്ന മൃഗശാലയുടെ ആദ്യഘട്ടം പൂർത്തിയായതായും ഈ വർഷം തന്നെ മൃഗങ്ങളെ അവിടേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു വാരാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി സാമൂഹ്യ വനവൽക്കരണ വിഭാഗവും മൂന്നാർ കെ എസ് ആർ ടി സിയും സംയുക്തമായി രാവിലെ മുതിരപ്പുഴയാറിന്റെ തീരത്ത് മുളത്തൈകളും ഈറ്റത്തൈകളും നട്ട് പിടിപ്പിക്കും ദേദ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറുമാത്തൂരിൽ നിർമ്മിച്ച കുടുംബശ്രീ പരിശീലന കേന്ദ്രം മന്ത്രി എ

കേരളത്തിലെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ ഇടപെടൽ നടത്താൻ കുടുംബശ്രീക്ക് കഴിയുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രുമ അനെർട്ടിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന അക്ഷയോർജ്ജ കോഴ്സുകളുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി എം

മണി കൊല്ലത്ത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് ഫിസിക്സ് വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് കോളജ് അക്ഷയോർജ്ജ കോഴ്സുകളും പ്രചാരണ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ദേഴ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ലൈഫ് മിഷൻ പദ്ധതിയിലെ സിബിഐ അന്വേഷണമടക്കം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും ദേഴ ഇപ്പോൾ തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ സർവ്വീസ് നടത്തുന്ന വേണാട് എക്സ്പ്രസ് ട്രെയിൻ മറ്റന്നാൾ മുതൽ ഷൊർണൂർ വരെ സർവീസ് നീട്ടുമെന്ന് റെയിൽവെ അറിയിച്ചു

ഭൂമി ഒരു മാസത്തിനകം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം വിതരണം ചെയ്യും